എന്നതിനാണ് ഇന്ത്യ മുൻഗണന് നിൽ ്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ

രാജ്യത്ത് കോർപ്പറേറ്റ് ക്മേഖലയിൽ ആദ്യമായി ആരംഭിക്കുന്ന ന് ട്രെയിൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും

ഇന്ന് ദുബായിൽ തുടക്കമാകും

ഇന്ത്യയ്ക്ക്

നാളെയാണ് സൂക്ഷ്മപരിശോധന ഈ മാസം ഏഴ് വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്

ഡൽഹിയിൽ ഇന്ത്യൻ സാമ്പത്തിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റ് തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയും ഇന്ധന ഇറക്കൂമ്ത്രിയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ലോകത്തെ മൂന്നാമത്തെ ഊന്നർജ്ജ ഉപഭോക്തൃ രാഷ്ട്രമായി ഇന്ത്യ മാറി

ആഗോളതലത്തിൽ എണ്ണ്ടിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടവും സ്ഥിരമായ ലഭ്യതക്കുറവും എണ്ണൂ ഉഷ്ടഭോക്തൃ രാഷ്ട്രങ്ങളെ പ്രതിസന്ധിയിലാക്കുമെന്നും അദ്ദേഹ് ചൂണ്ടിക്കാട്ടി ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ ലഭ്യത കൂടുതൽ ഉറപ്പാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് രാവിലെ ലക്നൌവിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും

യാത്രികർക്ക് വേഗതയേറിയതും ഏറെ സുഖകരവുമായ യാത്ര പ്രദാനം ചെയ്യുന്ന തേജസ് ട്രെയിൻ ഐ

യുടെ ഉടമസ്ഥതയിലുള്ളതാണ് മുന്തിയ ഭക്ഷണ സൌകര്യം ചായ കോഫി എന്നിവയ്ക്കായുള്ള വെന്റിങ് മെഷിനുകൾ എന്നിവ ട്രെയിനിലെ ഏതാനും സൌകര്യങ്ങളാണ് താമസിയാതെ തന്നെ ട്രെയിനിൽ എ ടി എം സേവനവും ലഭ്യമാക്കുമെന്ന് ഐ ആർ സി

ചീഫ് റീജിയണൽ മാനേജർ അശ്വനി ശ്രീ വാസ്തവ ആകാശവാണിയോട് പറഞ്ഞു

ഇന്നലെ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമേരിക്കൻ വ്യാപാര സെക്രട്ടറി വിൽബർ റോസും ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നു

കശ്മീരിനുള്ള പ്രത്യേക അധികാരം റദ്ദാക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ റിക്രൂട്ട്മെന്റാണിത്

റാൻഗേത്തിലെ കരസേന ആസ്ഥാനത്താണ് റാലി

റാലി ഇന്നും തുടരും

കൂടുതൽ പ്പിവർങ്ങളുമായി സുരേഷ്

ആറ് മൽസരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ മൂന്നെണ്ണം വിജയിച്ചു

ഇന്നലെ സൂറത്തിൽ നടന്ന അഞ്ചാം മൽസരത്തിൽ അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യയുടെ വിജയം

ദേശീയപാത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം വേഗത്തിൽ തീരുമാനം എടുക്കാന്നും കീർശന നിരീക്ഷണത്തിലൂടെ അവ നടപ്പാക്കാനും സാധിക്കണമെന്ന് അദ്ദേഹ് പറഞ്ഞു സമയബന്ധിതമായി തീരുമാനം എടുത്ത് അഴിമതിരഹിതവും ്സുത്ര്യവുമായ തൊഴിൽസാഹചര്യം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും കേന്ദ്ര്മന്ത്രി പറഞ്ഞു

ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതടക്കമുള്ള ക്ടാര്യുള്ങൾ അതിവേഗത്തിൽ തീരുമാനമെടുക്കാൻ താഴെത്തുട്ടിലുള്ള ഉദ്യോഗസ്ഥരുമായി യോജിച്ച് പ്രവർത്തിക്കണമെന്നും ക്കേന്ദ്രമുത്തി നിർദ്ദേശിച്ചു നിർമ്മാണച്ചെലവ് കുറച്ചുകൊണ്ടുവരാൻ പുത്തിൻസാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു

ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്ഗരിയെ കണ്ട് ചർച്ച നടത്തിയിരുന്നു

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് സംഗമം

ഗൾഫ് മേഖലയിലെ നിക്ഷേപക ശൃംഖല കേരളത്തിലേക്ക് എത്തിക്കുന്നതിനാണ് സംഗമം പ്രവാസിനിക്ഷേപം ലക്ഷ്യമിട്ട് രജിസ്റ്റർ ചെയ്ത ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിങ് ലിമിറ്റഡ് കമ്പനിയാണ് സംഗമം സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം ഗൾഫ് മേഖലയിലെ നിക്ഷേപക സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കും കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നടന്ന ലോക കേരളസഭയുടെ തുടർച്ചയായാണ് നിക്ഷേപക സംഗമം

പ്പട്ടിയൂർക്കാവിൽ എട്ടും കോന്നിയിൽ അഞ്ചും എറണാകുളത്ത് അഞ്ചുപേരുമാണ് അന്തിമപട്ടികയിൽ അരൂരിൽ ആറ് പേരും മഞ്ചേശ്വരത്ത് ഏഴ് പേരുമാണ് മത്സര രംഗത്തുള്ളത്

ജസ്റ്റിസ് എസ് മണികുമാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചു

നിയമന ഉത്തരവിൽ രാഷ്ട്രപതി ഒപ്പുവച്ചു ഗുജറാത്ത് രാജസ്ഥാൻ ഹിമാചൽപ്രദേശ് ആന്ധ്രാപ്രദേശ് സിക്കിം ഹൈക്കോടതികളിലും ഇതോടൊപ്പം ചീഫ് ജസ്റ്റിസുമാരെ നിയമിച്ചിട്ടുണ്ട്

ഒഴിയുന്നവർക്ക് എല്ലാ സഹായവും നൽകുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു

സമരത്തിന് പിൻതുണ പ്രഖ്യാപിച്ച് വയനാട് എം പി രാഹുൽഗാന്ധി ഇന്ന് സുൽത്താൻ ബത്തേരിയിലെ സമരപന്തലിൽ എത്തി ചേരും

ഇതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിപണികളിൽ സവാള വില കുറഞ്ഞു

ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ ആർ

സിങ്ങും പ്രഹ്ളാദ് ജോഷിയും സംയുക്തമായാണ് പ്രകാശ് എന്ന പേരിട്ട പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത് രാജ്യത്തെ താപനിലയങ്ങളിലേക്ക് കൽക്കരി എത്തിക്കുന്നത് സുഗമവും ശാസ്ത്രീയവുമാക്കാൻ ലക്ഷ്യമിട്ടാണ് പോർട്ടൽ നിലവിൽ വന്നത്

പഞ്ചാബ് ആന്റ് മഹാരാഷ്ട്ര കോ ഓപ്പറേറ്റീവ് ബാങ്ക് അഴിമതി ആരോപണത്തിന്റെ പേരിലാണ് അറസ്റ്റ്

മൂന്നു സ്റ്റേഷനുകളാണ് ഈ മേഖലയിൽ ഉള്ളത് കേന്ദ്രമന്ത്രി ഹർദീപ്സിങ് പുരിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ചേർന്നാണ് ഫ്ളാഗ് ഓഫ് നടത്തുക

ബാങ്കുകൾക്ക് ആർ

ഐ നൽകുന്ന വായ്പയുടെ പലിശനിരക്കായ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയേക്കുമെന്ന് സൂചനയുണ്ട്

എം നിതേഷ് റാണേ ബി ജെ

മഹാരാഷ്ട്ര മൂൻ ്മുഖ്യമന്ത്രി നാരായൺ റാണേയുടെ മകനാണ്

പെരുമ്പുഴ കാപ്പെക്സ് ഫാക്ടറിയിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ വാഹനത്തിന്റൈ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു